ആശുപത്രികൾക്കു കൂടി ഗുണനിലവാര അംഗീകാരം

വികസന പദ്ധതികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിച്ചു

രാജ്യത്തിന്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പ്രകൃതി വാതക വിഹിതം നാല് മടങ്ങ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ലിൻസ സിറാജ് വോയ്സ് മഹാമാരി കാലത്ത് ആഗോള ഊർജ്ജ മേഖലയിൽ വലിയ മാറ്റം ദൃശ്യമാണെന്നും ഇത് ഇന്ത്യൻ ഊർജ്ജ മേഖലയിൽ വളർച്ച സംരംഭകത്വം തൊഴിലവസരങ്ങൾ എന്നിവ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഗാന്ധിനഗറിലെ പണ്ഡിറ്റ് ദീൻദയാൽ പെട്രോളിയം സർവകലാശാലയുടെ എട്ടാമത് ബിരുദദാനച്ചടങ്ങ് വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

പണ്ഡിറ്റ് ദീൻദയാൽ പെട്രോളിയം സർവകലാശാലയുടെ സാധ്യതകൾ പെട്രോളിയം മേഖലയിൽ നിന്നും ഊർജ്ജ മേഖലയിലേക്ക് വികസിപ്പിക്കണം എന്ന് അദ്ദേഹം ഗുജറാത്ത് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ഇക്കാരൃത്തിൽ ആവശ്യമെങ്കിൽ നിയമഭേദഗതി വരുത്താനും അദ്ദേഹം നിർദ്ദേശിച്ചു

ഗുജറാത്ത് മുഖൃമന്ത്രി വിജയ് രൂപാണി സർവ്വകലാശാല ബോർഡ് ഓഫ് ഗവർണർസ് പ്രസിഡന്റ് മുകേഷ് അംബാനി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കാലാവസ്ഥാ വൃതിയാനത്തെ ചെറുക്കാന്റുള്ള് ചർച്ചകൾ ഇന്ത്യയിൽ സജീവമാണെന്ന് അദ്ദേഷ്ട്ടിറ്ററിൽ കുറിച്ചു

പാകിസ്ഥാൻ എംബസി ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തിയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആക്രമണ ഉദ്യമത്തിൽ ഇന്ത്യയുടെ പ്രതിഷേധം അറിയിച്ചത് പാകിസ്ഥാന്റെ പ്രദേശം ഭീകരാക്രമണങ്ങൾക്ക് ആയി അനുവദിക്കില്ല എന്ന അന്താരാഷ്ട്ര ഉടമ്പടി പാലിക്കണമെന്ന് ഇന്ത്യ വീണ്ടും ആവശ്യപ്പെട്ടു ഭീകരാക്രമണത്തിന് എതിരായ പോരാട്ടത്തിൽ ദേശീയ സുരക്ഷാ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു

മറ്റൊരു സൈനികന് പരിക്കേറ്റു

പരിക്കേറ്റ സൈനികനെ ആശുപത്രിയിലേക്ക് മാറ്റി പാക് സൈന്യം ഇന്നലെ രാത്രി മുതൽ അതിർത്തി ലംഘിച്ച് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു

ഇതിങ്ങ് ഷ്മലമായി രോഗ സ്ഥിരീകരണ നിരക്ക് കുറയുന്ന പ്രവണത ക്ണ്ടു തുടങ്ങി

യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും രോഗികളുടെ എണ്ണം വർധിക്കുന്ന സാഹചരൃത്തിൽ ഇന്ത്യയിലെ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫലപ്രദമാണെന്ന സൂചനയാണ് നൽകുന്നത്

ശൈലജ അറിയിച്ചു

നാല് കോടി യിലേറെ പ്പേർ രോഗ മുക്തരായി

നിലവിൽ ഒരുകോടി അറുപത്തിനാല് ലക്ഷത്തോളം പേരാണ് ചികിത്സയിലുള്ളത്

എണ്ണൂരിലെ കാമരാജ് തുറമുഖ വികസന പദ്ധതി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ടെർമിനൽ ചെന്നൈ നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് തിരുവള്ളുവർ ജില്ലയിൽ ഒരു പുതിയ റിസർവോയർ എന്നിവയും ശ്രീ അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്തു

കണ്ണൂർ മാട്ടൂൽ പ്രാഥമികാരോഗൃ കേന്ദ്രം കൊല്ലം ചാത്തന്നൂർ കോഴിക്കോട് പനങ്ങാട് കോട്ടയം വാഴൂർ കണ്ണൂർ മുണ്ടേരി മലപ്പുറം വഴിക്കടവ് എന്നിവിടങ്ങളിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് ബഹുമതി ലഭിച്ചത്

ഫുട്ബോൾ ടൂർണമെന്റ് ഇന്ന് രണ്ടാം ദിനം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും മുംബ്ലൈ സിറ്റി എഫ്

യൂണിഫോം ധാരികളായ യുവജനങ്ങളെ ഉൾക്കൊള്ളിച്ച ലോകത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങളിലൊന്നാണ് എൻ

ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പ്രതിരോധ സെക്രട്ടറി അജയ്കുമാർ എൻ സി സി ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് രാജീവ് ചോപ്ര എന്നിവർ ഇന്ന് പുഷ്പചക്രം സമർപ്പിച്ചു

ഇൻസ്റ്റിറ്റ്യൂറ്റിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാർ പൂർണ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു

ഐ ജീ മൊഹമ്മദ് സുലൈമാൻ ചൌധരി സന്ദർശനം നടത്തി വ്രൂനീരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സുരക്ഷ് വിലയിരുത്താനാണ് ഇദ്ദേഹം എത്തിയത് തുടർന്ന് സി

എഫിന്റെയും പോലീസിന്റെയും അവല്യോകന യോഗവും ചേർന്നു

കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പൊതു സുരക്ഷ കണക്കിലെടുത്താണ് നടപടിയെന്ന് ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറി ആർ

കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനത്തെ തുടർന്നാണ് നടപടി